ഇതിനായി കേരള പഞ്ചായത്തിരാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും ഭേദഗതി ചെയ്യുന്നതിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണ റോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനമെടുത്തു ഗ്രാമപഞ്ചായത്ത് ബ്പോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ഇതോടെ ഒരുവാർഡ് വീതം വർദ്ധിക്കും ഓർഡി നൻസിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും വാർഡുകളുടെ അതിർത്തി പുനർ നിർണയിക്കാൻ ഡീ ലിമിറ്റേഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീ ഷണർ വി ഭാസ്കരന്റെ നേതൃത്വത്തിൽ അഞ്ചംഗങ്ങളടങ്ങിയതാണ് ഡീലി മിറ്റേഷൻ കമ്മീഷൻ

ആർ

നമ്പിനാരായണൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനും കേസ് രമ്യമായി തീർപ്പാക്കുന്നതിനും ഗവൺമെന്റ് നിയോഗിച്ച മുൻ ചീഫ് സെക്ര ട്ടറി കെ ജയകുമാറാണ് ഗവൺമെന്റിന് ശുപാർശ നൽകിയത്

രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് ഉദ്ഘാ ടനം ചെയ്യും ഡോക്ടർ ശശി തരൂർ എം പി അധ്യക്ഷനായിരിക്കും തിങ്ക ളാഴ്ച വൈകീട്ട് ഉപരാഷ്ട്രപതി വെങ്കയ്യനാഡിഡു ബാലശാസ്ത്രജ്ഞരെ അഭിസംബോധന ചെയ്യും കുട്ടികളിൽ ശാസ്ത്രാഭിരുചി പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് ആദ്യമായാണ് കേരളം വേദിയാകുന്നത് വൃത്തിയും പച്ചപ്പും ആരോഗ്യവുമുള്ള ഒരു രാഷ്ട്രത്തിനായി ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും നവീന ആശയങ്ങളും എന്നതാണ് ശാസ്ത്ര കോൺഗ്രസിന്റെ പ്രമേയം

രാവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ് ഘാടനം ചെയ്യും ചരിത്ര കോൺഗ്രസിന്റെ നിയുക്ത അധ്യക്ഷൻ പ്രൊഫസർ അമിയ കുമാർ ബാഗ്ചി പ്രൊഫസർ ഇർഫാൻ ഹബീബിൽ നിന്ന് സ്ഥാനം ഏറ്റെടുക്കും

റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായാണ് പോർട്ടൽ ആരം ഭിച്ചിരിക്കുന്നത്

വിദ്യാലയങ്ങ ളിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ ഭാഗമായി അറ്റകുറ്റപണികൾ നടത്തുന്നതിന് ഗവൺമെന്റ് ആവിഷ്കരിച്ച വൃത്തിയുള്ള ശുചിമുറി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാനാണ് തുക അനുവദിച്ചത്

ആദ്യ ഘട്ടത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകൾക്കും ടോയ്ലെറ്റ് ബ്ലോക്കുകൾ നിർമ്മിക്കുന്നതിന് ഒന്നരക്കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ജില്ലയിലെ സ്കൂളുകൾക്ക് അടി സ്ഥാന സൌകര്യ പ്രികസനത്തിന്റെ ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മി ക്കുന്നതിന് പാക്കേജും ഗവൺമെന്റ് തയ്യാറാക്കി

പൂജയ്ക്കായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തി യായി രാത്രി പത്തിന് ഹരിവരാസനം പാടി നട അടയ്ക്കും മകരവിളക്ക് ഉത്സവത്തിനായി തിങ്കളാഴ്ച വീണ്ടും തുറക്കും

പാലക്കാട് നല്ലേപ്പിള്ളി സ്വദേശികളായ രമേഷ് മീര ആദിഷ ഋഷി കേശ് എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ നാലുപേരെ ആശുപത്രിയിൽ പ്രവേ ശിപ്പിച്ചു ഇന്നലെരാത്രി എട്ടരയോടെയായിരുന്നു അപകടം കോയമ്പത്തൂർ വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ച കാർ കേര ളത്തിലേക്ക് വരികയായിരുന്ന ടാങ്കർലോറിയുമായി കൂട്ടിയിടിക്കുകയായി രുന്നു ദർവ്വട്ടെഴ മനുഷ്യമനസ്സിന്റെ മഹത്വം ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊണ്ടുവന്നത ല്ലെന്ന് മിസോറം ഗവർണർ പി

രാജ്യത്തിന്റെ മഹത്തായ കാഴ്ചപ്പാടിലൂടെയാണ് ജനങ്ങൾ ഐക്യത്തോടെ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരള വ്യാപാരി വൃവസായി ഏകോ പന സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണത്തിൽ സംസാരി ക്കുകയായിരുന്നു ശ്രീധരൻപിള്ള

എൽ ഫുട്ബോളിൽ ഗ്ഗോവ എഫ് സി കുതിപ്പ് തുടരുന്നു ഇന്നലെ ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ആവേശകരമായ മത്സരത്തിൽ മൂന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ചെന്നൈയിൻ എഫ് സിയെ ഗോവ തോൽപ്പിച്ചത്

ഇന്ന് സെമിയിൽ പഞ്ചാബാണ് കേരളത്തിന്റെ എതിരാളികൾ

രണ്ട് സ്വർണവും രണ്ട് വെള്ളിയും നേടിയാണ് കേരളം ചരിത്രത്തിലാദൃമായി ബോക്സിംഗ് കിരീടം ചൂടിയത് രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ഭുവനേശ്വറിൽ ദേശീയ സീനിയർ വോളിബോൾ ചാമ്പൃൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കേരളം ഡൽഹിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴട ക്കി പുരുഷ വിഭാഗത്തിൽ കേരളം റെയിൽവേസിനോട് രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് പൊരുതിതോറ്റു

മന്ത്രി ഇ

ഇന്ത്യൻ യുവത്തിന്റെ പ്രതി കരണ ശേഷി പ്രതീക്ഷയും അഭിമാനവുമാണെന്ന് മന്ത്രി പറഞ്ഞു കലാ കായിക രംഗത്തെ കഴിവുകളിലൂടെ യുവജനങ്ങളെ ഏകോപിപ്പിക്കാൻ കേര ളോത്സവത്തിന് കഴിയുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു

മറ്റന്നാൾ സമാപിക്കും

ഉച്ചകഴിഞ്ഞ് വിശ്വകർമ്മ സെമിനാർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും

സുനാമിയുടെ പതിനഞ്ചാം വാർഷികത്തിൽ സുനാമി സംസ്ഥാനത്ത് ഏറ്റവുമധികം ദുരന്തം വിതച്ച കൊല്ലം അഴീക്കലിൽ അനു സ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേഴ്സിക്കുട്ടിയമ്മ രദ്ദേഷ്ടങ അധികാരം ഉപയോഗിച്ച് ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ശ്രമിക്കരുതെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഐ

ഒ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ രുട്ടിട്ട്ട്ട്ട്ട്ട ട സാമൂഹ്യനീതിയും രാജ്യസുരക്ഷയുമാണ് പൌരത്വഭേദഗതി നിയമത്തി ന്റെ അടിസ്ഥാനമെന്നും അതുമൂലം രാജ്യത്ത് ആർക്കും പൌരത്വം നിഷേധി ക്കില്ലെന്നും ബി

പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ കൊല്ലത്ത് പറഞ്ഞു പൌരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് ബി

പി സം ഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുഖ്യമ ന്ത്രിയും പ്രതിപക്ഷനേതാവും വർഗീയത ഇളക്കി അക്രമത്തിന് പ്രേരണ നൽ കുകയാണെന്നും കുമ്മനം ആരോപിച്ചു രദ്ദേഷ്ടങ പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് ബി

പി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ശില്പശാല പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ

ചില് കേന്ദ്രങ്ങൾ നടത്തിയ ആസൂത്രിത പ്രചരണങ്ങളിൽ രാജ്യത്തെ മുസ്ലിം സമുദായവും സംഘടന കളും വീണുപോവുകയാണെന്ന് അദ്ദേഹം ആരോപ്പിച്ചു രദേഷ്ടെഴ സെൻസസിന്റെ ഭാഗമായ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ നിന്നും കേരളം വിട്ടുനിന്നാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അടക്കം കേരളത്തിന് വൻനഷ്ടം നേരിടേണ്ടിവരുമെന്ന് ബി

പി സംസ്ഥാന ജനറൽസെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു ദേശീയ പൌരത്വനിയമ ഭേദഗതി സംബന്ധിച്ച് ബി

പി കോഴിക്കോട് ജില്ലാകമ്മറ്റി സംഘടിപ്പിച്ച ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രദ്ദേഷ്ടങ ദേശീയ പൌരത്വ രജിസ്റ്ററിൽ വ്യക്തത തേടി മുസ് ലിംലീഗ് സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി കോഴിക്കോട്ട് പറഞ്ഞു

ഇതിനു മുമ്പായി കേന്ദ്ര ഗവൺമെന്റ് നിലപാടിൽ വൃക്തത തേടി സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു

പിയുടെ സോഷ്യൽമീഡിയ വിഭാഗമാണെന്ന് സി

ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡി രാജ കുറ്റപ്പെടുത്തി ഭരണഘടനയെ സംരക്ഷിക്കാൻ എല്ലാ ജനവിഭാഗങ്ങളും രംഗത്തിറങ്ങേണ്ട സമയമാണിതെന്ന് അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു

ഇതിന് മുന്നോടിയായി ഇന്ന് വൈകീട്ട് പാല ക്കാട്ട് വിളംബരറാലി സംഘടിപ്പിക്കും സമ്മേളന പ്രതിനിധികൾക്കായി വൈകീട്ട് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന അമൃത എക്സ്പ്രസിലും മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന വെസ്റ്റ്കോസ്റ്റ് എക്സ്പ്രസിലും പ്രത്യേക കോച്ചുകൾ ഉണ്ടായിരിക്കുമെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ പാലക്കാട്ട് അറിയിച്ചു

പാത പുതു ക്കലിന്റെ ഭാഗമായി ട്രെയിൻ നേരത്തെ ഭാഗികമായി റദ്ദാക്കിയിരുന്നു